പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണ്ണാടകയും തമിഴ്നാടും സന്ദർശിക്കും വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും

ഉജ്ജ്വല വിജയം

ധനകാര്യമന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സമീർകുമാർ ഖരെയും ലോകബാങ്കിന്റെ ഇന്ത്യയിലെ ആക്ടിങ്ങ് ഡയറക്ടർ ഹിഷാം അബ്ഡോയും ഇതു പ്രാബ്ബ്സിച്ച കരാറിൽ ഇന്നലെ ഒപ്പുവച്ചു ഇതുവഴി ലഭ്യമാകുന്ന വായ്പയിലൂട്ടെ പ്രഗാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് കാർഷിക കാർഷികേതരി കൃ ഉത്പന്നങ്ങളുടെ വിവിധ സംരംഭങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കും സ്ത്രീകളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള കാർഷിക കാർഷികേതര സംരംഭങ്ങളുടെ പ്രചാരത്തിനും വിപണിയിൽ പ്രോത്സാഹനം ലഭിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും പദ്ധതി സഹായകരമാകും

വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി നവനീത

ബംഗളൂരുവിലെ ഇ

ഐ

ഹുബള്ളിയിൽ കർണാടക മെഡിക്കൽ സയൻസസിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഉദ്ഘാടനം ചെയ്യും കലബുർഗിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയ വിനിമയം നടത്തും

കാഞ്ചീപുരത്തെത്മുന്നു പ്രധാനമന്ത്രി അയ്യായിരം കോടിയുടെ ദേശീയ പാതാ വികസന പ്രദ്ധത്തൂക്ക് തുടക്കമിടും

വെല്ലൂർ തിരുപ്പണ്ണാമലയിൽ വിലുപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന പാതയാണ്കിൽ

റെയിൽവേ ലൈൻ വൈദ്യൂതീകരണ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

ലാന്റ് പോർട്ട് അതോറിറ്റിയുടെ മൂന്ന് നിർമ്മാണ പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും

സിഗ്നൽസ് എഞ്ചിനീയേഴ്സ് ആർമി ഏവിയേഷൻ ആർമി എയർ ഡിഫെൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനേഴ്സ് ആർമി ആർമി ആർമി കോർപ്സ് ആർമി ഓർഡിനൻസ് കോർപ്സ് തുടങ്ങി പത്ത് വിഭാഗ്ങ്ങളിലും സ്ഥിരം കമീഷൻ നൽകും നിലവിൽ രണ്ട് മേഖ്യിൽ മാത്രമാണിതുള്ളത് ഷോർട്ട് സർവ്വീസസിൽ നാല് വർഷ്ക് സ്ക്വനം പൂർത്തിയാക്കിയ വനിത ഓഫീസർമാരെയാണ് ഈ പ്രിയിയിൽ നിയമിക്കുക സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വനീത്രികൾക്കും സൈനൃത്തിൽ നിർണായക സ്ഥാനമുണ്ടാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു

ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രീസിന്റെ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ജി

ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കണമെന്ന് അദ്ദേഹം വ്യവസായ മേഖലയോട് അഭ്യർത്ഥിച്ചു

ഇന്നലെ വൈകുന്നേരം ആറിനാണ് ന്നീയന്ത്രണരേഖയ്ക്ക് സമീപം പാക് സേന ഇന്ത്യൻ പോസ്റ്റിനു നേര്ത് ് മോർട്ടാർ ഷെല്ലാക്രമണങ്ങൾ നടത്തിയെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു ഇന്ത്യയും ശക്തമായി തിരിച്ചടിച്ചു ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല

ഇന്ത്യൻ വിമാനത്തെ വെടിവച്ചിട്ടു എന്ന പാക്വ്യോമസേനയുടെ വാദം വ്യാജമാണെന്നും വ്യോമസേന അറിയിച്ചു

മിസൈൽ ആക്രമണത്തിന് പാക് വ്യോമസേന ശ്രമിച്ചെങ്കിലും ഇന്ത്യ പരാജയപ്പെടുത്തിയതായി സേന അറിയിച്ചു

രാജ്യമെമ്പാടും ഇരുപത് ഭാഷകളിലായാണ് പരീക്ഷ ് ന്ട്ടത്തുന്നതെന്ന് സി ബി എസ് ഇ അറിയിച്ചു

ഇക്കാര്യം കർശനമായി നടപ്പാക്കാൻ വേണ്ടിയാണ് ഇന്ന് ബാങ്കേഴ്സ് സമിതിയോഗം വിളിച്ചിരിക്കുന്നത്

കരിയറിലെ നാൽപതാം സെഞ്ചറി തികച്ച വിരാട് കോഹ്ലിയാണ് കളിയിലെ കേമൻ കൂടുതൽ വിവരങ്ങളുമായി നവനീത

രോഹിത് ശർമ്മ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി

മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും സ്പിന്നർമാരിലൂടെ ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു

ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ നേടുന്ന അഞ്ഞൂറാം വിജയമായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യ എ

ലൈംഗിക്ക ആരോപണ വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം പുരസ്കാരം വിത്രുണ്ണം ചെയ്തിരുന്നില്ല

കൊച്ചി മെട്രോയ്ക്ക് പുറമെ വാട്ടർ മെട്രോ കൊച്ചി സ്മാർട്ട് മിഷൻ എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും സംഘം വിലയിരുത്തും

കേസിൽ മൂന്നാം പ്രതിയാണ് രവി പൂജാരി കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്

ഇയാളെ നാർക്കോട്ടിക്സ് വിഭാഗം ചോദ്യം ചെയ്തുവരുന്നു

അടുത്ത മൂന്നു ദിവസം ജീവ്ഗത്ത പാലിക്കണം

ബൂധനാഴ്ച എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ ചൂട് കൂടാൻസാധൃതയുണ്ട്

മറ്റുജില്ലകളിലും താപനിലയിൽ നേരിയ കുറവുണ്ട്

ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി എ

മൊയ്തീൻ നിർവഹിച്ചു